ജലീൽ മന്ത്രിസ്ഥാനം രാജിവച്ചു ബന്ധുനിയമനത്തിൽ മന്ത്രി കുറ്റക്കാരനാണെന്ന ലോകായുക്തയുടെ കണ്ടെത്തലിനെ തുടർന്നാണ് രാജി

സംസ്ഥാനത്ത് കോവിഡ് വ്യാപനും രൂക്ഷമായി തുടരുന്നു

കോവിഡ് നിയന്ത്രണങ്ങൾ ക്ർശനമാക്കി സംസ്ഥാന സർക്കാർ പൊതു പ്രിപ്പാടികൾക്ക് അടക്കം നിയന്ത്രണം ഏർപ്പെടുത്തി സർക്കാർ ഉത്തരവ് പുറത്തിറക്കി

തൃശൂർ പൂരത്തിൽ പങ്കെടുക്കുന്നവർക്ക് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി

റംസാൻ വ്രതാനുഷ്ഠാനങ്ങൾക്ക് ഇന്ന് തുടക്കം വിഷുവിനെ വരവേൽക്കാനൊരുങ്ങി മലയാളികൾ

എല്ലിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും

ജലീൽ മന്ത്രിസ്ഥാനം രാജിവച്ചു ബന്ധു നിയമനത്തിൽ മന്ത്രി കുറ്റക്കാരനാണെന്ന ലോകായുക്തയുടെ കണ്ടെത്തലിനെ തുടർന്നാണ് മുഖ്യമന്ത്രിക്ക് രാജിക്കത്ത് കൈമാറിയത്

ന്യൂനപക്ഷ വികസന കോർപ്പറേഷനിൽ ബന്ധുവായ ടി

അദീബിനെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികളാണ് രാജി വരെയെത്തിച്ചു സംഭവങ്ങളുടെ അടിസ്ഥാനം നിയമനം നടത്താനായി മന്ത്രി യോഗ്യതയിൽ മാറ്റം വരുത്തി എന്നതായിരുന്നു പ്രധാന ആരോപണം രണ്ടര വർഷം മുമ്പ് ഉയർന്ന ആരോപണത്തിൽ ലോകായുക്തയുടെ ഉത്തരവ് വന്നതോടെയാണ് മന്ത്രിയുടെ രാജിക്കായുള്ള ആവശ്യം പ്രതിപക്ഷം ശക്തമാക്കിത് ലോകായുക്ത ഉത്തരവിനെതിരെ കെ

ഹർജി ഇന്ന് പരിഗണിച്ച ഹൈക്കോടതി വിധി പറയാനായി മാറ്റി വച്ചു പിണറായി മന്ത്രിസഭയിൽ നിന്നും രാജിവയ്ക്കുന്ന അഞ്ചാമത്തെ മന്ത്രിയാണ് ഉക

തെറ്റ് ചെയ്തിട്ടില്ലെന്ന ഉത്ത്മബോധൃം ഉണ്ടെന്നും രാഷ്ട്രീയ ധാർമികതയുടെ പേരിലാണ് രാജിയെന്നും അദ്ദേഹം പറഞ്ഞു

ടി ജലീൽ രാജിവച്ചതെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു പൊതുജന അഭിപ്രായം സർക്കാരിന് എതിരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഗത്യന്തരമില്ലാതെയാണ് രാജിയെന്ന് കെ

സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദൻ പറഞ്ഞു

ജലീലിനൊപ്പം മുഖ്യമന്ത്രിയും രാജിവെക്കണമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ

വിജയരാഘവൻ ബേബി ലോകായുക്ത വിധിയുടെ പശ്ചാത്തലത്തിൽ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചാണ് മന്ത്രി കെ

ജലീലിന്റെ രാജി എന്ന് സി

ഐ എം സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ പൊതു ജീവിതത്തിന്റെ മാന്യത ഉയർത്തിപ്പിടിച്ചയാളാണ് കെ ടി ജലീലെന്നും രാജി തീരുമാനം സ്വാഗതാർഹമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പാർട്ടിയുടെയും മുന്നണിയുടെയും ധാർമിക മൂല്യങ്ങൾ ഉയർത്തിപിടിച്ചാണ് കെ ടി ജലീലിന്റെ രാജി എന്ന് സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം എം

കോഴിക്കോട് എറണാകുളം ജില്ലകളിലാണ് ഏറ്റവൂര ക്ട്ടുതൽ രോഗബാധിതർ

കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്

വോയ്സ് രോഗ വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ പൊതുപരിപാടികളിൽ പങ്കെടുക്കാവുന്നവരുടെ എണ്ണത്തിൽ സംസ്ഥാനത്ത് നിയന്ത്രണം ഏർപ്പെടുത്തി

ഇതിൽ കൂടുതൽ ആളുകളെ പങ്കെടുപ്പിക്കണമെങ്കിൽ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് വിവാഹം കലാകായിക സാംസ്കാരിക പരിപടികൾ ഉത്സവങ്ങൾ തുടങ്ങി എല്ലാ പൊതുപരിപാടികൾക്കും ബാധകമായിരിക്കും

ന്യൂസ് ഡെസ്ക് ആകാശവാണി

കോവീഡ് കാലത്ത് പരമാവധി ആശുപത്രി സന്ദർശനം ഒഴിവാക്കി വീട്ടിൽ ഇരുന്നുകൊണ്ടുതന്നെ ചികിത്സ തേടാൻ കഴിയുന്നതാണ് ഇ സഞ്ജീവനി

ക്ഷേത്രങ്ങളിൽ വിഷു പ്രമാണിച്ച് കൃത്യമായ സാമൂഹിക് അകലം ഉൾപ്പെടെ എല്ലാ കോവിഡ് മാനദണ്ഡങ്ങളും പാലിക്കുന്നൂ എന്ന് ഉറപ്പു് വരുത്തും

ഒഴിവാക്കണമെന്നും ബോർഡ് തീരുമാനീച്ചു

ജയശ്രീ ഇൻഡ്രോ കോവിഡ് രോഗം പകരൂന്നത് തടയുന്നതിനുള്ള ഏറ്റവും നല്ല ഉപാധിയാണ് വാക്സ്ത്രീന്ദേഷനെന്നും എല്ലാവരും വാക്സിൻ സ്വീകരിക്കണമെന്നും കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം മേധാവി ഡോ

ബോട്ടപകടം ബേപ്പൂരിൽ നിന്നും മംഗലാപുരത്തേക്ക് മീൻ പിടുത്തത്തിന് പോയ ബോട്ടിൽ കപ്പലിടിച്ച് മൂന്ന് മരണം രണ്ട് പേരെ രക്ഷപ്പെടുത്തി മറ്റുള്ളവർക്കായി തെരച്ചിൽ തുടരുകയാണ്

വിശ്വാസികൾക്ക് ഇനിയുള്ള മുപ്പത് നാൾ വ്രതശുദ്ധിയുടെ വിശുദ്ധ ദിനങ്ങളാണ് കോവിഡ് വ്യാപനത്തിന്റെ ൃസാഹചര്യത്തിൽ ഇക്കുറി നിയന്ത്രണങ്ങൾ പാലിച്ചായിരിക്കും പ്പാർത്ഥനാ കർമ്മങ്ങളും നോമ്പുതുറയും നടക്കുക

അടിസ്ഥാന ജന വിഭാഗങ്ങളുടെ തുല്യതയ്ക്കും നീതിയ്ക്കും വേണ്ടി നിലകൊണ്ട ബി

ശശി നാളെ ഹാരാർപ്പണവും പുഷ്പാർച്ചനയും നടത്തും

എൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും

ആദ്യ മത്സരത്തിൽ തന്നെ നേരിട്ട പരാജയുത്തെ മറികടക്കുകയാണ് നിലവിലെ ചാമ്പ്യൻമാരായ മുംബൈ ഇന്ത്യൻസിന്റെ ഇന്നത്തെ ലക്ഷ്യം

ആലപ്പുഴ എറണാകുളം ഇടുക്കി വയനാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു

സ്വർണ്ണവില കുറഞ്ഞു